കാർഷികൂ പ്രതിസന്ധി അഴിമതി സാമ്പത്തിക അസമത്വം എന്നിവയാണ് ഇത്തുവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കൂകൃഎന്ന് ശ്രീ

എൻഡിഎ സ്ഥാനാർഥി പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിലെത്തും വൈകിട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രചാരണ റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ കോഴിക്കോട്ടെത്തും

സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് ചാലക്കുടിയിലും തൃശൂരിലും എൽഡിഎഫ് സ്ഥാനാർഥികളുടെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു